വികസിപ്പിക്കണമെന്ന് ശാസ്ത്രജ്ഞരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പൂനെയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഐസറിലെ ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ക്സീൻ എനർജി ബയോടെക്നോളജി തുടങ്ങി വിവിധ വിഷയങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പ്രധാനമന്ത്രിക്കു മുമ്പാകെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു

ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിശദമായ ചർച്ച നടത്തി സംസ്ഥാന പൊലീസിലെയും കേന്ദ്ര ഏജൻസികളിലെയും ഇരുന്നൂറിലേറെ ഉദ്യോഗസ്ഥർ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ആഭ്യന്തരമന്ത്രി അമിത് ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് സമാപിക്കുന്ന സമ്മേളനം ആഭ്യന്തര സുരക്ഷയ്ക്കുള്ള സമഗ്ര പദ്ധതി തയ്യാറാക്കും

നീതിക്കുള്ള നടപടി ക്രമങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്ന സാഹചര്യമുണ്ടാകണമെന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു രാജസ്ഥാൻ ഹൈക്കോടതി മന്ദിരോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി സമൂഹത്തിലെ ദരിദ്രരും നിരാലംബരുമായ ആളുകൾക്ക് നിയമസേവനം സൌജന്യമായി നൽകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു

എസ്

മുംബൈ കൊൽക്കത്ത കാൻപൂർ ഡൽഹി നോയിഡ ഹൈദ്രാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലായിരുന്നു കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് റെയ്ഡ് നടത്തിയത് ഓഹരി ഇടപാടുകാരുടെയും വ്യാപാരികളുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രവർത്തന രീതികൾ ഉൾപ്പെടെ എല്ലാ തലങ്ങളും വിശദമായി അന്വേക്കുന്നതിനായിരുന്ന റെയ്ഡ്

തിരുവനന്തപുരത്ത് മാസ്ക്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ ചിത്രങ്ങളുടെ മാർക്കറ്റിങ് സംബന്ധിച്ചുള്ള ചർച്ച നടക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക്

പോലീസ് ഉരുട്ടിക്കൊലയ്ക്കു വിധേയനായ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മ യുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന മായി ഘട്ട് ക്രൈം നം

മേളയുടെ രണ്ടാം ദിവസമായ ഇന്നലെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ദക്ഷിണാഫ്രിക്കൻ ചിത്രം ഫിലാസ് ചൈൽഡിന്റെ രണ്ടാമത് പ്രദർശനവും ഇന്നു നടക്കും

വിദ്വേഷം പരത്തുന്ന സന്ദേശങ്ങളും വ്യാജവാർത്തകളും ചില കേന്ദ്രങ്ങൾ പരത്തുന്നുണ്ടെന്ന് പൊലീസ് ട്വീറ്റ് ചെയ്തു ഇത്തരം സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വാട്സ് ആപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കണമെന്നും അസം പൊലീസ് നിർദ്ദേശിച്ചു

പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിലൊരാളാണ് മെഹുൽ ചോക്സി അനാരോഗ്യം മൂലവും ജീവനു ഭീഷണിയുള്ളതിനാലും ചോക്സിക്ക് ഇന്തൃയിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ചോക്സിയെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറ്ക്ടറേറ്റിന്റെ ഹർജി കോടതി ഇനി പരിഗണിക്കും സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചാൽ ചോക്സിയുടെ ആസ്തികൾ എൻഫോഴ്സ്മെന്റിന് കണ്ടു കെട്ടാനാകും

അഖില ഭാരതീയ് ്രഗ്ലാഹക് പഞ്ചായത്ത് വിദർഭ പ്രാന്ത് നാഗ്പൂരിൽ സംഘടിപ്പിച്ചു പ്പിരിപ്പാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മഹാത്മാഗാന്ധി പിണ്ണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ തുടങ്ങിയ നേതാക്കൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ സ്വദേശി സ്വാതന്ത്ര്യം സ്വാശ്രയത്വം എന്നിവയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് മുളകൃഷി ജൈവ ഡീസൽ ഉൽപ്പാദനം സി എൻ ജി ഉൽപ്പാദനം എന്നിവയിലൂടെ ഗ്രാമീണ ആദിവാസി സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്താമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

രാജധാനി എഫ് എം റെയിൻബോ നിലയങ്ങളിലും മത്സരത്തിന്റെ തത്സമയ വിവരണം ഉണ്ടാവും

ഇന്ത്യൻ നീന്തൽ താരങ്ങൾ ഇന്നലെ ഉജ്ജ്വല പ്രകടനമാണ് നടത്തിയത്

ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി എട്ടു സ്വർണ്ണ മെഡലുകളാണ് ഇതു വരെ സ്വന്തമാക്കിയത് ഇന്നലെ നടന്ന മൂന്നു മത്സരങ്ങളിലും ഇന്ത്യൻ ഷൂട്ടിംഗ് താരങ്ങൾ മെഡലുകൾ നേടി സൈക്കിംളിങിൽ ഇന്ത്യ രണ്ടു സ്വർണ്ണവും ഒരു വെള്ളിയും സ്വന്തമാക്കി വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഇന്ത്യ രണ്ടു സ്വർണ്ണം നേടി

വനിതാ വിഭാഗം ഫുട്ബോളിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഭാമർഘട്ടിലെ നക്സലൈറ്റ് മേഖല കമ്മിറ്റി അംഗമായ പാർവതിയെ പിടികൂടുന്നവർക്ക് ആറു ലക്ഷം രൂപയാണ് പോലീസ് പ്രഖ്യാപിച്ചിരുന്നത്

വ്യോമയാന ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ കൊൽക്കത്ത ഗംഗാ സാഗർ ദിഹാ മാൽദ ബാലൂർഘട്ട് എന്നിവിടങ്ങളിലേക്ക് ഹെലികോപ്റ്റർ സർവീസുകൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ ചെറു വിമാനത്താവളങ്ങ ളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാ ണെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു

ബൽഗം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കർണാടകവും മഹാരാഷ്ട്രയും തമ്മിലുള്ള അതിർത്തി തർക്കം വർഷങ്ങളായി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സുപ്രീം കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്നും ഉദ്ധവ് താക്കറെ അറിയിച്ചു മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയുമായി ഉദ്ധവ് താക്കറെ വിഷയം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്നതിന്റെ കേന്ദ്രീകൃത സംവിധാനമാണിത്